യൂണിവേഴ്സിറ്റി കോളജില്ല അനിഷ്ട്ട സംഭവങ്ങളിൽ ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി കോളജിലെ സംഭവങ്ങൾ സിബിഐ അന്വേഷിക്കണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രി വിളിച്ച് മുതിർന്ന പൊലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും മറയൂർ ദശർക്കരയുടെ ഭൌമസൂചികാ പദവി പത്രം മറ്റന്നാൾ കൈമാറും

വിമത എംഎൽഎമാരുടേയും സ്പീക്കറുടേയും മുഖ്യമന്ത്രിയുടേയും ഹർജികളാണ് സുപ്രീം കോടതി പരിശോധി ക്കുന്നത് എംഎൽഎമാരുടെ രാജിക്കത്തുകളിൽ തീരുമാനമെടു ക്കാൻ സ്പീകർക്കാണ് അധികാരമെന്നും അതിൽ ഇടപെടാൻ കോട തികൾക്കാവില്ലെന്നുമാണ് കർണാടക സ്പീക്കറുടെ നിലപാട് നിശ്ചിത സമയത്തിനകം രാജിക്കത്തുകളിൽ തീരുമാനം കൈക്കൊള്ളാൻ നിർദേശിക്കുന്നത് ഭരണഘടനാപരമായി അംഗീകരിക്കാനാവില്ലെന്നും സ്പീക്കർ പറയുന്നു

നിയമനിർമ്മാണ സഭകളുടെ അധികാര ത്തിൽ കോടതിക്ക് ഇടപെടാനാകുമോ എന്ന ഭരണഘടനാപരമായ തർക്കമായതിനാൽ ഹർജികളിലെ തീരുമാനം ഏറെ നിർണ്ണായകമാ യിരിക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരി ഗണിക്കുന്നത് രാഷ്ട്രീയ അനിശ്ചിതത്വം തൂടരുന്ന കർണ്ണാടകയിൽ മുഖ്യമന്ത്രി എച്ച്

കുമാരസ്വാമി മന്ത്രിസഭ മറ്റന്നാൾ വിശ്വാസവോട്ട് തേടും ഇന്നലെ ചേർന്ന നിയമസഭ കാര്യോപദേശക സമിതി യോഗത്തിലാണ് തീരുമാനം

നവകേരള നിർമ്മാണത്തിന് പൊതുസമവായം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശൃപ്പെട്ടു നാടിന്റെ മുഴുവൻ സഹകരണത്തോടെയും പിന്തുണയോടെയും പ്രളയാനന്തര കേരള ത്തിന്റെ പുനർനിമ്മാണമാണ് ഉണ്ടാവേണ്ടതെന്ന് തിരുവനന്തപുരത്ത് റീബിൽഡ് കേരള കർമ്മ പദ്ധതി വിശദീകരിക്കാൻ ചേർന്ന മാധ്യമ എഡിറ്റർമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ഇക്കാ രൃത്തിൽ മാധൃമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു അപകട സാധൃത മുൻനിർത്തി വീട് നിർമ്മിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ചിലർ വൈമുഖ്യം കാട്ടുക യാണ് കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനും സുരക്ഷിത സ്ഥാന ത്തേക്ക് അവരെ മാറ്റാനും മാധ്യമങ്ങൾ ബോധവൽക്കരണം നടത്തണ മെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു യൂണിവേഴ്സിറ്റി കോളജിലെ അനിഷ്ട്ട സംഭവങ്ങളിൽ ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പിണ റായി വിജയൻ പറഞ്ഞു

ഇക്കാര്യത്തിൽ എടുക്കുന്ന നടപടികളിൽ ഒരു ലാഘവതവും ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളജിലെ കത്തിക്കുത്ത് കേസിൽ പ്രതികളായവർക്ക് പൊലീസ് കോൺസ്റ്റബിൾ റാങ്ക് പട്ടിക യിൽ മികച്ച സ്ഥാനം ലഭിച്ച സംഭവം പിഎസ്സി വിജിലൻസ് വിഭാഗം അന്വേഷിക്കും ഇവർ ഹാജരാക്കിയ കായ്പിക സർട്ടിഫിക്കറ്റിന്റെ ആധി കാരികതയും പരിശോധിക്കും ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തീകരിക്കാൻ ചെയർമാൻ എം

സക്കീർ നിർദേശം നൽകി എന്നാൽ പരീക്ഷയിൽ ക്രമക്കേടോ പിഴവുകളോ ഉണ്ടായിട്ടില്ലെന്ന് ചെയർമാൻ വ്യക്തമാക്കി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളജിലെ സംഭവങ്ങൾ സിബിഐ അന്വേഷിക്കണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്ര ട്ടറി കെ

സംഭവത്തിൽ ഉൾപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്ന് സർവകലാശാല ഉത്ത രകടലാസുകളും സീലുകളും ലഭിച്ചത് ഗൌരവമായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു പൊലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പിഎ സ്സിയുടെ സുതാരൃതയും വിശ്വാസൃതയും നഷ്ടമായതായും സുരേ ന്ദ്രൻ വിലയിരുത്തി കോഴിക്കോട്ടെ അമൃത് പദ്ധതി നടത്തിപ്പിലെ ക്രമക്കേടുകളെ പറ്റി കേന്ദ്രത്തിന് പരാതി നൽകിയതായും സുരേന്ദ്രൻ അറിയിച്ചു

മണി അറിയിച്ചു

ഇല്ലിക്കുന്ന് ഇടപ്പാട്ട് മല കുടിവെള്ള പദ്ധതികളും ഉദ്ഘാടനവും പാലക്കുഴ പഞ്ചായത്തിന്റെ ഐഎസ്ഒ പ്രഖ്യാപനവും നടത്തുകയാ യിരുന്നു മന്ത്രി ഇത്തവണ പുതിയ മുനിസിപ്പാലിറ്റികൾ രൂപീകരിക്കേണ്ട എന്നാണ് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെന്ന് മന്ത്രി ഡോ തോമസ് ഐസക് അറിയിച്ചു മുക്കം പോലെ ഗ്രാമീണത വിട്ടുമാറാത്ത ചെറുപ്പട്ടണങ്ങളെ മുനിസിപ്പാലിറ്റി ആക്കുന്നത് എന്തിനാണെന്ന് മനസിലാകുന്നില്ലെന്ന് അദ്ദേഹം ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ക്ഷീര കർഷകരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ മുക്കം മുനിസിപ്പാലിറ്റിയെ അഭിനന്ദിക്കുന്ന പോസ്റ്റിലാണ് പരാമർശം മുനിസിപ്പാലിറ്റിയായതോടെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഇത്തരം മേഖലകൾ പുറ ത്താവുകയാണെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു വയനാട് കാർബൺ ന്യൂട്രൽ ജില്ലയായി മാറുന്നതോടെ കാർഷിക വിളകൾക്ക് ഉയർന്ന വില ലഭിക്കുമെന്ന് മന്ത്രി ഡോ

ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ ഒന്നിച്ച് പങ്കാളികളായാൽ ആഗോള തലത്തിൽ വയനാടൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വർദ്ധിച്ച സ്വീകാര്യത ലഭിക്കുമെന്ന് അദ്ദേഹം പറ ഞ്ഞു

ഈ വർഷം ഫെബ്രുവ രിയിലാണ് പദ്ധതി ആരംഭിച്ചത് തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ വിവിധ ഗവൺമെന്റ് പദ്ധ തികൾ യുവാക്കൾ പൂർണമായി പ്രയോജനപ്പെടുത്തണമെന്ന് ധന മന്ത്രി നിർമ്മലാ സീതാരാമൻ ആവശ്യപ്പെട്ടു

ഗവൺമെന്റ് പദ്ധതികളുടെ ഗുണഭോക്താക്കളായി മാറുന്ന തോടെ യുവജനങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങളും ഭാവിയും ലഭ്യ മാകുമെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു

ഉയർന്ന പ്രായക്കാരെ സിവിൽ സർവീസിൽ പരിശീലിപ്പിച്ചെടുക്കുന്നത് ശ്രമകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു

മുഖ്യമന്ത്രി വിളിച്ച മുതിർന്ന പൊലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും ക്രമസമാധാന ചുമതല നിർവ്വ ഹിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വീഡിയോ കോൺഫറൻസിങ്ങി ലൂടെ യോഗത്തിൽ പങ്കെടുക്കും ്സംസ്ഥാന പൊലീസ് മേധാവിയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും എസ്പിമാരും തിരുവനന്തപുരത്തെ യോഗത്തിൽ പങ്കെടുക്കും മറ്റ് ജില്ലകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയായിരിക്കും യോഗത്തിൽ പങ്കെ ടുക്കുന്നത് ൃ മറയൂർ ശർക്കരയുടെ ഭൌമസൂചികാ പദവി പത്രം മറ്റന്നാൾ മന്ത്രി വി

സുനിൽകുമാർ അഞ്ചുനാട് കരിമ്പ് ഉൽപ്പാദക വിപണന സംഘത്തിന് കൈമാറും

ശർക്കരയുടെ വിപണി മെച്ചപ്പെടുത്താനും കരിമ്പ് കൃഷി വിപുലമാക്കാനും ലക്ഷ്യമിട്ട് സംഘ ടിപ്പിക്കുന്ന ശിൽപശാലയും മന്ത്രി കോവിൽക്കടവ് തെങ്കാശിനാഥൻ ക്ഷേത്രം ഹാളിൽ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ വിമാനത്താവളം യാഥാർഥ്യമായതോടെ അഴീക്കൽ തുറമുഖത്തിന്റെ വ്യാപാര സാധ്യതകൾ ഏറെ വർധിച്ചതായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു വ്യാപാരത്തിന് പുറമെ വിനോദ സഞ്ചാര രംഗത്ത് തുറമുഖത്തിന്റെ സാന്യതകൾ പ്രയോജനപ്പെടുത്താനാവുന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

പൊതുജനങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും ജപ്തി നടപടി നേരിടുന്നവരിൽ നിന്നും ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങളും പരാതികളും നിർദേശങ്ങളും കമ്മീഷൻ സ്വീകരിക്കും

ശർമ്മ എംഎൽഎയാണ് കമ്മറ്റി ചെയർമാൻ കടൽക്ഷോഭം നേരിടുന്ന ന്യൂനപക്ഷ മേഖലയായ ഫോർട്ട്കൊച്ചി ചെല്ലാനം പ്രദേശങ്ങൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇന്ന് സന്ദർശിക്കും കടൽക്ഷോഭ നാശനഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ സന്ദർശനം

ശേഷിക്കുന്ന വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ട ങ്ങളിലാണെന്നും ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു ബംഗാളിലും ത്രിപുരയിലും നേരിട്ട അതേ അവസ്ഥ കേരള ത്തിലും സിപിഐഎമ്മിനെ കാത്തിരിക്കുന്നുണ്ടെന്ന് എ

ലോകാവസാനം വരെ പഴയ പ്രതാപത്തി ലേക്ക് തിരിച്ചെത്താൻ കോൺഗ്രസിന് കഴിയില്ലെന്നും അദ്ദേഹം കോഴി ക്കോട്ട് പറഞ്ഞു

ബിജെപി കോഴിക്കോട് ജില്ലാ കമ്മറ്റി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി കരിപ്പൂർ ഹജ്ജ് ഹൌസിന് ഏറ്റവുമടുത്ത ഫറോക്ക് റെയിൽവെ സ്റ്റേഷനിൽ ജനശതാബ്ദിയടക്കം ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദി ക്കണമെന്ന് ആവശ്യപ്പെട്ട് എം

വയനാട്ടിൽ ആദിവാസികൾക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകി മഞ്ജുവാര്യർ ഫൌണ്ടേഷൻ വഞ്ചിച്ചെന്ന പരാതി യിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി നിയമ നടപടികൾ അവ സാനിപ്പിച്ചു